കോവിഡ് മഹാമാരിക്കാലത്ത് ലോക രാജ്യങ്ങൾക്ക് സഹായഹസ്തവുമായി ഇന്ത്യ നില കൊണ്ടുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി

ഐഎസ്എൽ രണ്ടാം സെമിയിൽ എ ടി കെ മോഹൻ ബഗാൻ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനോട് ഏറ്റുമുട്ടുന്നു

ഇന്ത്യയെയും ബംഗ്ലാദേശിനെയും ബന്ധിപ്പിക്കുന്ന മൈത്രി സേതുവിന്റെ ഉദ്ഘാടനം വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മൈത്രി സേതു ഇരുരാജ്യങ്ങളേയും ബന്ധിപ്പിക്കുന്നതിനോടൊപ്പം രാഷ്ട്രങ്ങൾ തമ്മിലുള്ള സൌഹൃദം ദൃഢമാക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി

മൈത്രി സേതുവിന്റെ ഉദ്ഘാടന്റെത്തോടെ അഗർത്തല ഒരു അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഏറ്റവും അടുത്തുള്ള ഇന്ത്യൻ നഗരമായി മാറുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ത്രിപുരയിലെ നിരവധി അടിസ്ഥാന വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു

ത്രിപുരയ്ക്കുള്ള കേന്ദ്ര വിഹിതത്തിൽ കാരൃമായ വർധനയുണ്ടായതായും അദ്ദേഹം അറിയിച്ചു വടക്കുകിഴക്കൻ ഇന്ത്യയ്ക്കും ബംഗ്ലാദേശിനും ഇടയിലുള്ള വ്യാപാര ഇടനാഴിയായി പ്രദേശത്തെ വികസിപ്പിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് പുതിയ നിക്ഷേപങ്ങൾ വഴി ത്രിപുരയിലെ വ്യാവസായിക രംഗം കൂടുതൽ മെച്ചപ്പെടുകയാണ്

മൈത്രി സേതു പൂർത്തീകരിക്കുന്നതിൽ സഹകരിച്ചതിന് ബംഗ്ലാദേശ് പ്രധാനമന്ത്രിക്ക് അദ്ദേഹം നന്ദി അറിയിച്ചു ത്രിപുര ബംഗ്ലാദേശ് അതിർത്തിയിലൂടെ ഒഴുകുന്ന ഫെനി നദിയ്ക്ക് കുറുകെയാണ് മൈത്രി സേതു നിർമ്മിച്ചിരിക്കുന്നത് ബംഗ്ലാദേശിലെ ചിറ്റഗോംഗ് തുറമുഖത്തെ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുമായി നദീ മാർഗം ബന്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളും നടന്നുവരികയാണെന്ന് അദ്ദേഹം അറിയിച്ചു ന്യൂസ്ഡെസ്ക് ആകാശവാണി

പോളിറ്റ് ബ്യൂറോയുടെ അംഗീകാരത്തിനു ശേഷം സി

എം നാളെ സ്ഥാനാർഥികളെ പ്രഖ്യാപിക്കുമെന്നാണ് സൂചന

രണ്ടു ദിവസത്തിനകം നാല് സീറ്റുകളിൽകൂട്ടി പ്രഖ്യാപനം നടത്തുമെന്നും സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജ്ജേന്ദ്ൻ അറിയിച്ചു

ഡി

ബിജെപിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം മറ്റന്നാൾ തൃശൂരിൽ ചേരുന്ന തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിന് ശേഷം ഉണ്ടാവുമെന്ന് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ കെ

മുതിർന്ന ബി ജെ

നേതാവും അസം മുഖ്യമന്ത്രിയുമായ സർബാനന്ദ സോനോവാൾ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു മജൂലി മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം മത്സരിക്കുന്നത്

ഇതോടെ സംസ്ഥാനത്ത് കൂടുതൽ കേന്ദ്രങ്ങളിൽ വാക്സിൻ കുത്തിവയ്പ്പ് സാധ്യമാകുമെന്ന് ആരോഗ്യ വകുപ്പ് അറിയിച്ചു

കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ തുടർച്ചയായി വർദ്ധനവ് കണ്ടെത്തിയതിനെ തുടർന്ന് നൈറ്റ് ക്ലബുകളും വിനോദ സഞ്ചാര കേന്ദ്രങ്ങളും അടച്ചിടാനും സർക്കാർ ആലോചിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു

നിലവിൽ രാജസ്ഥാനിൽ ആവശ്യത്തിന് കോവിഡ് വാക്സിൻ ഡോസുകൾ ലഭ്യമാക്കിയിട്ടുണ്ടെന്നും സംസ്ഥാനങ്ങളിലേയും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലേയും വാക്സിൻ വിതരണ നടപടികൾ കേന്ദ്ര സർക്കാർ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും ആരോഗ്യമന്ത്രാലയം വ്യക്തമാക്കി

ഇന്നത്തെ മത്സരത്തിൽ ജയം നേടുന്ന ടീം ഫൈനലിൽ മുര്ബൈയോട് പോരാടും